എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്

പോളിംഗ് ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും പ്രകൃത്യസമയത്ത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തുന്നതിന്റ് ് ഡീൽഹി മെട്രോ ഇന്ന് രാവിലെ നാല് മണി മുതൽ സർഫ്ട്രീസ് ആരംഭിച്ചു എല്ലാ വോട്ടർമാരും തങ്ങളുടെ സമ്മതിട്ടാക്കാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു

ഇരുരാജ്യങ്ങൾക്കും താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായാണ് വിവരം രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകി വൈകിട്ട് ശ്രീലങ്കൻ പ്രധാനമന്ത്രി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും സന്ദർശിക്കും

വിവിധ മേഖലകളിലുള്ള പരസ്പര സഹകരണവും ഉഭയകക്ഷി പദ്ധതികളുടെ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ ശ്രീ ജയശങ്കർ ഉന്നയിച്ചു രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും ശ്രീ രജപക്സെ ആദരമർപ്പിക്കും

പ്രധാനമന്ത്രിപദം ഏറ്റെടുത്തശേഷമുള്ള രജപക്സെയുടെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്

ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ പ്രതിരോക്മ്രന്തി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു പി

വാണിജ്യാടിസ്ഥാനത്തിൽ പറത്തുന്നതിനുള്ള അനുമതിയും മേളയിൽ എച്ച്

എല്ലിന് ലഭിച്ചു എച്ച്

എല്ലും ഡി ആർ ഡി

മികച്ച രീതിയിലാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പരിപാടി നടത്തിയതെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി ശ്രീപദ്നായിക് ആകാശവാണിയോട് പറഞ്ഞു പ്രതിരോധ ഗവേഷണ രംഗത്തെ പ്രോൽസാഹിപ്പിക്കുന്നതിന് ബൌദ്ധിക സ്വത്തവകാശ നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതിരോധ സെക്രട്ടറി ഡോ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കഴിഞ്ഞ രണ്ടാം തീയതി തിരക്കേറിയ ലാൽചൌക്കിലുണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ നാല് പ്രദേശവാസികൾക്കും ര് സിആർപിഎഫ് ജവാൻമാർക്കും പരിക്കേറ്റിരുന്നു

സംസ്ഥാന മന്ത്രി ഹേമന്ത് ബിശ്വാസ് ശർമ്മയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നതായും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

അതേസമയം അരവിന്ദ് രാജ് കോവ നേതൃത്വം നൽകുന്ന വിഭാഗം സർക്കാരുമായി ഒന്നിലധികം തവണ ചർച്ച നടത്തിയിരുന്നു

സംഭവത്തിൽ ഇതുവരെ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

കുറ്റാരോപിതന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ബില്ലിലെ വൃവസ്ഥകളെയാണ് ഹർജിയിൽ ചോദൃം ചെയ്യുന്നത്

ജസ്റ്റിസുമാരായ അരുൺ മിശ്ര വിനീത് ശരൺ രീവന്ദ്ര ഭട്ട് എന്നിവരടങ്ങുന്ന ബഞ്ചാണ് കേസ് പരിഗണിക്കുക

കേന്ദ്രമന്ത്രി ക്ഷ്യ്ക്ഷവർദ്ധൻ ഇന്നലെ രാജ്യസഭയിൽ അറിയിച്ചതാണിത്

ഹോൾഡ് വോയിസ് ഇന്ത്യയിൽ കൊറോണ ക്വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കൊറോണ ബാധയെ തുടർന്ന് ജപ്പാനിൽ ഡയമണ്ട് പ്രിൻസസ് എന്ന ആഡംബര ക്രൂയിസ് കപ്പലിൽ കഴിയുന്ന ഇന്ത്യൻ യാത്രികരെ പ്രത്യേകം നിരീക്ഷിച്ചുവരുന്നതായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു അവർക്കാർക്കും വൈറസ് ബാധ ഉണ്ടായിട്ടില്ലെന്ന് ടോക്കിയോയിലെ ഇന്തൃൻ എംബസി വൃത്തങ്ങൾ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ പുതിയ വൈറസ് ബാധ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രീതി സുദനും അറിയിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദിവസേനയുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു

ഇീഫ് മാസം മൂന്നിന് ശേഷം ഒരാൾക്ക് പോലും രോഗം സ്ഥിര്യീകർച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ഏർപ്പെടുത്തൂിയ് സംസ്ഥാന ദുരന്ത പ്രഖ്യാപനം പിൻവലിച്ചു

എറണാകുളം മെഡിക്കൽ കോളേജിൽ വിദഗ്ദ്ധ പരിശോധന നടത്തിയശേഷമാണ് ഇവരെ വീടുകളിലേയ്ക്ക് അയയ്ക്കുന്നത് വരും ദിവസങ്ങളിലും ഇവർ കർശന നിരീക്ഷണത്തിലായിരിക്കും

എ

ചൈനയിൽ ചികിത്സയിലായിരുന്ന ഒരു അമേരിക്കൻ പൌരനും മരിച്ചു

അതേസമയം പുരുഷ ടീം ടൂർണമെന്റിൽ പങ്കെടുക്കും

കമ്പനിയിലൂടെ നടക്കുന്ന ഇടപാടുകൾ നീരിക്ഷിക്കുന്നതിനായി ഒരു ഉന്നതാധികാര സമിതിയേയും രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതിക്കാണ് കമ്പനിക്ക് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ അനുമതി നൽകാനുള്ള അധികാരം ഉള്ളത്

സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ വിസ്താരം കഴിയുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം

ശ്രീലങ്കയിലെ വിനോദ സഞ്ചാരമേഖലയുടെ പുനരുജ്ജീവനം വഴി ആഭ്യന്തര ഉൽപാദന നിരക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷയെന്ന് ഐ

ശ്രീലങ്കയുടെ പുതിയ ഭരണ നേതൃത്വത്തിന്റെ നയ അജണ്ട വിലയിരുത്താൻ ഐ എം എഫിന്റെ ഒരു സംഘം കഴിഞ്ഞമാസം ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു

നാലുമണിക്ക് നടക്കുന്ന രണ്ടാം സെമിയിൽ ഹരിയാനയും മഹാരാഷ്ട്രയും തമ്മിലേറ്റുമുട്ടും